ഉന്നാവോ പീഡനകൊലപാതക്ട് ക്കേസ് അതിവേഗ കോടതി പരിഗണിക്കുമെന്ന് ഉത്തർപ്പ്രദേശ്ര് ്ഗവൺമെന്റ്

ഇന്ത്യയുടെ മുന്നേറ്റം തുടരുന്നു

വൈകിട്ട് മൂന്നിന് വോട്ടെടുപ്പ് അവസാനിക്കും ജാംഷഡ്പൂർ ഈസ്റ്റ് ജാംഷഡ്പൂർ വെസ്റ്റ് നിയോജക് മണ്ഡലങ്ങളിൽ സമ്മതിദായകർക്ക് വൈകിട്ട് അഞ്ച് മണിവരെ വോട്ട് രേഖപ്പെടുത്താം നക്സൽ ഭീഷണിയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്

മുഖ്യമന്ത്രി രഘുബർദാസ് നിയമസഭാ സ്പീക്കർ ദിനേശ് ഓറിയൺ ഗ്രാമീണ വികസന മന്ത്രി നീൽകാന്ത് സിംഗ് മുണ്ഡ ജല വിഭവ മന്ത്രി രാമചന്ദ്ര സാഹിസ് ബി ജെ

അത്യന്തം ദൌർഭാഗ്യകരമായ സംഭവമാണ് ഉന്നാവോയിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കുമെന്നും കേസ് അതിവേഗ കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരുമെന്നും ശ്രീ യോഗി ആദിത്യ നാഥ് അറിയിച്ചു അതേസമയം സംസ്ഥാന ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്ന് ബി

അധ്യക്ഷ മായാവതി ട്വീറ്റ് ചെയ്തു

ഐ

രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്ത പൊലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ചോദിച്ചു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

ജി പി ഐ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

സംസ്ഥാന പോലീസ് കേന്ദ്ര സായുധ പോലീസ് സേനാ വിഭാഗം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻമാരുടെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ഡിസംബർ ഏഴ് സായുധ സേന പതാകദിനമായി ആചരിക്കുന്നത്

വോയ്സ് അതിർത്തി കാക്കുന്ന ജവാൻമാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള നല്ല അവസരമാണിതെന്ന് ഉപരാഷ്ട്രപതി എം

പതാക ദിനത്തിൽ ശേഖരിക്കുന്ന പണം സൈനികരുടെയും കൂടുംബത്തിന്റെയും വിമുക്തഭടൻമാരുടെയും ക്ഷേമത്തിനായാണ് വിനിയോഗിക്കുന്നതെന്ന് അദ്ദേഹം ടവിറ്ററിൽ കുറിച്ചു സൈനികരെയും കുടുംബത്തെയും സംശക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് സൈനികരുടെയും അവരുടെ ക്ടുംബ്ത്തിന്റെയും അചഞ്ചലമായ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നിതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

സൈനികരുടെയും വിമുക്തഭടൻമാരുടെയും പ്രക്ഷമത്തിനായി പരമാവധി സഹായം ചെയ്യണമെന്ന് പ്രതിരോധ മ്ന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പതാക ദിന നിധിയിലേക്കുള്ള സംഭാവനകൾക്ക് ആദായനികുതി ഇളവുണ്ട് സായുധ സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആശംസകൾ നേർന്നു

പ്ലാസ്റ്റിക്ക് മാലിന്യത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പരിസര ശുചീകരണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ജപ്പാൻ കൊറിയ സന്ദർശനം ആരോഗ്യം ടൂറിസം ഐ

അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ആധുനിക കാലത്തിലെ തൊഴിലുകൾ എന്നിവ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ സന്ദർശനത്തിലൂടെ നടത്താനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷത്തെ ജപ്പാനിലെ വ്യവസായികൾ സ്വാഗതം ചെയ്തു

തോഷിബ ടോയൊട്ട കമ്പനികളുമായി ഉടൻ കരാറിലെത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ദക്ഷിണാഫ്രിക്കൻ ചിത്രം ഫീലാസ് ചൈൽഡ് ബ്രസ്സീലിയൻ ചിത്രം പാക്വറ്റ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നുള്ള ദ പ്രൊജക്ഷനിസ്റ്റ് എന്നീ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും

ബാഡ്മിന്റൺ വൃക്തിഗത ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് എട്ട് മെഡലുകൾ ലഭിച്ചു അഷ്മിത ചാലിഹയും സിറിൽ വർമയും പുരുഷ വനിതാ ചാമ്പ്യൻമാരായി

ടേബിൾ ടെന്നീസിലെ സർണ്ണവും വെള്ളിയും പൂർണ്ണമായും ഇന്ത്യയാണ് കരസ്ഥമാക്കിയത്

കേരള താരങ്ങളായ കെ

ഇന്ദ്രജ യു

അഞ്ജു സാബു ആൾ ഇന്ത്യ പോലീസിലെ കെ

മൂന്നു താരങ്ങളിലും സർണ്ണ പ്രതീക്ഷയാണ് കേരളം പുലർത്തുന്നത്

വിയന്നയിൽ ഇന്നലെ ചേർന്ന ഒപെക് രാജ്യങ്ങളുടെയോഗത്തിലാണ്തീരുമാനം കൂടുതൽവിവരങ്ങളുമായി ബിന്ദു

പെട്രോളിയം വിലയിലെ സമ്മർദ്ദവും ആഗോള സാമ്പത്തിക മാന്ദ്യവും കണക്കിലെടുത്താണ് തീരുമാനം അടുത്തവർഷം ജനുവരി ഒന്നിന് തീരുമാനം പ്രാബല്യത്തിൽ വരും

അടുത്ത വർഷം മാർച്ച് ആറിന് ഒപെക് വീണ്ടും യോഗം ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്യുമെന്ന് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു സൌദിഅറേബ്യയും ഒപെക് തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നും ഉത്പാദനം കുറയ്ക്കുമെന്നും വൃക്തമാക്കിയിട്ടുണ്ട് ഒപെക് തീരുമാനത്തെ ത്തുടർന്ന് അസംസ്കൃത എണ്ണ വിലയിൽ ആഗോളതലത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്

ഇ

നേരത്തെ ബാങ്കിന്റെ പ്രിസ്ട്രൂത്തി ദിവസങ്ങളിൽ പകൽ സമയത്ത് മാത്രമേ നെഫ്റ്റ് സൌക്കര്യ്ക് ലഭ്യമായിരുന്നുള്ളൂ

ഈ സംവിധാനം ലഭ്യമാക്കിയ ഏറ്റവും ഒടുവിലത്തെ റെയിൽവേ സ്റ്റേഷനാണ് ജാർഖണ്ഡിലെ മഹ്വമിലൻ റെയിൽവെ സ്റ്റേഷൻ റെയിൽ വയറിന് കീഴിലാണ് യാത്രക്കാർക്ക് സൌജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുന്നത്